സ്വീകരിക്കുന്നതിനോടൊപ്പം ശിക്ഷിക്കപ്പെടുന്നവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കണളുമന്ന് മുഖ്യമന്ത്രി

വിഭാഗങ്ങളുടെയും ഒത്ത്രൂരുമിച്ച പ്രവർത്തനം കാരണമാണ് നിപ നീയന്ത്രിക്കാനായതെന്ന് മന്ത്രി കെ

ഷൈലജ ഇന്ന് ജി

നികുതി നടപ്പിലാക്കിയിട്ട് ഒരു വർഷം

ഡെൻമാർക്കിനെതിരെ ക്രോയേഷ്യയും മൽസരിക്കും ട്ടടടടടടടടടടടടടട ജയിൽ ഇൻട്രോ കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനോടൊപ്പം ശിക്ഷിക്കപ്പെടുന്നവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പൂർത്തിയാക്കിയ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ വോയിസ് തടവുകാരോടുള്ള മനോഭാവം മനുഷ്യത്വ പൂർണമാകണമെന്ന കാഴ്ചപ്പാടാണ് ഗവൺമെന്റിനുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശിക്ഷിക്കപ്പെടുന്നവരുടെ മനുഷ്യത്വം ചോർത്താനുള്ള ഇടമല്ല ജയിലുകൾ ഒരുകാലത്ത് മനുഷ്യാവകാശ ജയിലുകൾ

ജയ്യിലുകളുടെ പ്രവർത്തനം നിയമാസൃതമായിരിക്കണമെന്നും ജയിൽ പ്രിഷ്കരണം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു

രാവിലെ കണ്ണൂർസെൻട്രൽ ജയിലിൽ എത്തിയ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി

പിണറായി വിജയൻ കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കുന്നത്

ശൈലജ പറഞ്ഞു നിപ നിയന്ത്രണത്തിലെ ത്യാഗോജ്ജല സേവനത്തിന് ആദരവും ഡോക്ടേഴ്സ് ദിനാചരണവും കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിപ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിച്ചത് ആരോഗ്യ രംഗത്ത് കേരളത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചെന്ന് ചടങ്ങിൽ അദ്ധ്യക്ഷത വഹിച്ച മന്ത്രി ടി

നിപ തടയാൻ കേരളം കാണിച്ച ജാഗ്രത സാംക്രമിക രോഗങ്ങളുടെ കാര്യത്തിൽ ഇനിയും തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ വർഷത്തെ ഡോക്ടേഴ്സ് അവാർഡുകൾ ചടങ്ങിൽ മന്ത്രി കെ

ശൈലജ വിതരണം ചെയ്തു വൈകിട്ട് ടാഗോർ സെന്റിനറി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് പൌരാവലിയുടെ സ്നേഹാദരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ആദരിക്കപ്പെടുന്നവർക്ക് ചടങ്ങിൽ പ്രശസ്തി പത്രം സമ്മാനിക്കും

ഇത് അ്ഞ്ചാം തവണയാണ് വ്യക്തികൾക്ക് പാൻ നമ്പർ ആധാറുമായി ് ബന്ധിപ്പിക്കാനുള്ള സമയ പരിധി ദീർഘിപ്പിക്കുന്നത് പുതുതായി പാൻ കാർഡ് ലഭിക്കുന്നതിനും നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിനും ആധാർ നിർബന്ധമാക്കിക്കൊണ്ട് ഗവൺമെന്റ് കഴിഞ്ഞവർഷം ആദായ നികുതി നിയമം പരിഷ്ക്കരിച്ചിരുന്നു നിലവിൽ പാൻ കാർഡ് കൈവശമുള്ളവരും അവ ആധാറുമായി ബന്ധിപ്പിക്കേണ്ടതാണ് ടടടടടടടടടടടട ജി എസ് ടി സ്വതന്ത്ര ഇന്തൃയിലെ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമായ ചരക്ക് സേവന നികുതി നിലവിൽ വന്നതിന്റെ ഒന്നാം വാർഷികമായ ഇന്ന് കേന്ദ്രഗവൺമെന്റ് ജി

ടി ദിനമായി ആചരിക്കുന്നു

ടി സമ്പ്രദായം നിലവിൽ വരുകയും ചെയ്തു

ലോക്സഭാ തെരെഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനൊപ്പം കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി സംബന്ധിച്ചും അദ്ദേഹം ആശയവിനിമയിൽ നടത്തും

അലോട്ട്മെന്റ് സംസ്ഥാനത്തെ എഞ്ച്വീനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിലേക്കുള്ള ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു

മെഡിക്കൽ ഡെന്റൽ കോഴ്സുകളിലേക്ക് ആദ്യഘട്ട അലോട്ട്മെന്റ് ഈ മാസം നാലിന് പ്രസിദ്ധീകരിക്കും

മൽസ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്

സുധാകരൻ പറഞ്ഞു കാസർകോട് മധൂർ ബെദിയടുക്ക ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുറത്തിക്കുണ്ട് പാലത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയുണ്ടായിരുന്നു

പരിക്കേറ്റ്വരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ടടട ട്രൈബൽ ട്രൈബൽ മേഖലയിലെ കുട്ടികൾ സ്ക്കൂൾ പ്രവേശനം നേടാത്തതുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ സർവേ നടത്തും

കൂടുതൽ യന്ത്രസാമഗ്രികളും തൊഴിലാളികളെയും എത്തിച്ച് ദ്രുതഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്

കഴിഞ്ഞ ടൈംടേബിളിൽ പ്രഖ്യാപിച്ച പ്രതിവാര ട്രെയിനാണിത്

തീം സോംഗ് ലോകകപ്പ് ഫുട്ബോൾ പ്രീ കാർട്ടറിന്റെ ഇന്നത്തെ ആദ്യമൽസരത്തിൽ റഷ്യയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടും

വിശദാംശങ്ങളുമായി അനിൽകുമാർ വോയിസ് പ്രീകാർട്ടറിൽ ഇരു ടീമുകളും നേർക്ക് നേർ വരുമ്പോൾ സാധ്യത കൂടുതൽ സ്പാനിഷ് ടീമിന് തന്നെ എന്നാൽ വിജയത്തിനായി അവസാനംവരെ പൊരുതാൻ ശേഷിയുള്ള റഷ്യൻ സംഘത്തെ തള്ളിക്കളയാനുമാവില്ല എ ഗ്രൂപ്പിൽ കളിച്ച റഷ്യ ആദ്യ രണ്ട് കളികളിലായി സൌദി അറേബ്യയേയും ഈജിപ്റ്റിനേയും കീഴടക്കി പ്രീക്വാർട്ടർ ഉറപ്പിക്കുന്ന ആദ്യ ടീമായി പോർച്ച്ഗലിനൊപ്പം ഗ്രൂപ്പ് ബിയിൽ കളിച്ച സ്പെയിൻ ഗ്രൂപ്പിൽ ഒന്നാമതായാണ് റഷ്യയെ നേരിടാൻ വരുന്നത് ഇന്നത്തെ രണ്ടാം മൽസരത്തിൽ ഡെൻമാർക്ക് ക്രൊയേഷ്യയെ നേരിടും

ഡി ഗ്രൂപ്പിൽ നിന്ന് രാജകീയമായിട്ടാണ് ക്രൊയേഷ്യ പ്രീകാർട്ടറിൽ കടന്നത്

അർജന്റീനയെ ഏകപക്ഷീയമായ മൂന്ന് ഗോളിനാണ് രീക്കായേഷ്യ കീഴടക്കിയത് പ്രതിഭാ സമ്പന്നരായ ക്രൊയേഷ്യൻ ടീമിന് വെല്ലുവിളി ഉയർത്താൻ ഡെൻമാർക്കിന് കഴിയുമോ എന്നാ്ണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്നാൽ ശക്തമായ പ്രതിഭ്രോധം കാഴ്ചവയ്ക്കുന്ന ഡെൻമാർക്ക് അവസാന നിമിഷം വര്ക്ക് പ്പൊരുതും എന്നത് തീർച്ചയാണ് ന്യൂസ് ഡസ്ക് ആകാശവാണി

സമൂഹത്തിലെ നാനാതുറകളിലുള്ള പ്രമുഖർ ആലപ്പുഴയിലെ വസതിയിലെത്തി ഗൌരിയമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു ഉച്ചയ്ക്ക് റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ പിറന്നാൾ സദ്യയും പിറന്നാൾ ആഘോഷവും ഒരുക്കിയിട്ടുണ്ട് ടട കവർച്ച ഹെൽമറ്റ് ധരിച്ചെത്തിയ കവർച്ചക്കാരൻ വീട്ടമ്മയുടെ വായിൽ തുണിതിരുകി കാലും കയ്യും കെട്ടിയിട്ട് സ്വർണ്ണം കൊള്ളയടിച്ചു കാസർകോട് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ചെർക്കുള എതിർതോട് ബദർ നഗറിലെ സുഹ്റയാണ് കൊള്ളയ്ക്ക് ഇരയായത് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം സുഹ്റ വീട് പൂട്ടി തൊട്ടടുത്തുള്ള സഹോദരിയുടെ വീട്ടിൽപോയി തിരിച്ച വന്ന് അകത്ത് കടക്കുമ്പോഴാണ് ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് വായിൽ തുണി തിരുകി വൻ മോഷണം നടത്തിയത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു